തോമസ് ഐസക് എല്ലാ പഞ്ചായത്തുക്ളിലും ഭക്ഷ്യവിതരണകേന്ദ്ര ങ്ങൾ തുറക്കുമെന്നും മന്ത്രി

സംസ്ഥാനത്തെ പ്രളയക്കെടുതി ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ വില യിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി ജില്ലാ കലക്ടർമാരും ജില്ലാ പൊലീസ് മേധാവികളും യോഗത്തിൽ പങ്കെടുക്കുന്നു പ്രളയാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗം ചർച്ച ചെയ്യും പ്രളയബാധിത പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾപഠിക്കാൻ പ്രളയ ഗ്രാമ സഭ നടത്തുമെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് പറഞ്ഞു ഗ്രാമസഭ യിൽ ദുരിതബാധിത മേഖലയിൽ ഓരോ വീട്ടിലെയും ഒരാളെയെങ്കിലും പങ്കെടുപ്പിച്ച് ചർച്ച നടത്തും

ഒരാഴ്ചയ്ക്കുള്ളിൽ വിവരശേഖ രണം പൂർത്തിയാക്കുമെന്നും എല്ലാ പഞ്ചായത്തുകളിലും ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങൾ തുറക്കുമെന്നും മന്ത്രി സ്വകാര്യ ചാനൽ അഭിമുഖത്തിൽ പറ ഞ്ഞു ജലശുദ്ധീകരണത്തിനും കുടിവെള്ളം ഉറപ്പാക്കുന്നതിനും മുൻഗണന നൽകുമെന്നും കന്നുകാലികളുടെ ജഡം മറവുചെയ്യുന്നതി നാവശ്യമായ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതായും തോമസ് ഐസക് പറഞ്ഞു

ചന്ദ്രശേഖരൻ പറഞ്ഞു പുഴകളുടെയും റോഡുകളു ടേയും പുറംപോക്കിൽ വീടുകെട്ടി താമസിച്ചിരുന്നവരെ പുനരധിവസിപ്പി ക്കും പഴയസ്ഥലത്ത് തിന്നെ വീട് വച്ച് നൽകില്ലെന്ന് മന്ത്രി സ്വകാര്യ ചാനലിനോട് പറഞ്ഞു

കേരളത്തിന്റെ വിദേശ വായ്പാ പരിധി ഉയർത്താൻ കേന്ദ്രഗവൺമെന്റിനോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി പറ ഞ്ഞു സംസ്ഥാനത്തെ പ്രപളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കോൺഗ്രസ് അധൃക്ഷൻ രാഹുൽഗാന്ധി നാളെ രാവിലെ തിരുവനന്ത പുരത്തെത്തും നാളെയും മറ്റന്നാളുമായി ചെങ്ങന്നൂർ ആലപ്പുഴ ചാല ക്കുടി ആലുവ പറവൂർ വയനാട് ജില്ലയിലെ കോട്ടാത്തല എന്നിവിടങ്ങ ളിലെ പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്ചാസ ക്യാമ്പുകളും സന്ദർശി ക്കുന്ന അദ്ദേഹം മറ്റന്നാൾ ഉച്ചയ്ക്ക് കരിപ്പൂരിൽ നിന്ന് ഡൽഹിക്ക് മട ങ്ങും ആലപ്പുഴയിൽ പ്രളയദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിച്ച മത്സ്യത്തൊ ഴിലാളികൾക്ക് നൽകുന്ന സ്വീകരണചടങ്ങിൽ രാഹുൽഗാന്ധി പങ്കെടു ക്കും

മൂന്നു ദിവ സത്തെ ശുചീകരണയജ്ഞം നാളെ ആരംഭിക്കും

വയനാട് ആലുവ എന്നിവിടങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകളും ദക്ഷിണ നാവിക കമാൻഡ് സംഘടിപ്പിക്കുകയുണ്ടായി രക്ഷപ്പെടുത്തിയ പത്തി ലധികംപേർക്ക് ഐ

സഞ്ജീവനിയിൽ ചികിത്സ നൽകി രണ്ട് പ്രസവങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു പതിനായിരത്തിലേറെ പേർക്ക് ഭക്ഷണം നൽകുന്നതിന് സമൂഹ അടുക്കളയും കമാൻഡ് ഒരുക്കിയിരു ന്നു കാല വർഷ ക്കെടുതിയു മായി ബന്ധ പ്പെട്ട് ആരോഗ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി കെ

ജീവന ക്കാരുടെ ഒരുദിവസത്തെ വേതനമാണ് ഇപ്രകാരം നൽകുന്നതെന്ന് തമി ഴ്നാട് ഗവൺമെന്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറി സി

രാജ്കുമാർ ചെന്നൈയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദേവസ്വങ്ങളിൽനിന്ന് സമാഹരിച്ച തുക കോഴിക്കോട് സാമൂതിരി കെ

ഉണ്ണി അനുജൻ രാജ മന്ത്രി ടി

വളയനാട് ദേവീക്ഷേത്രം തിരുനാവായ നാവാമു കുന്ദക്ഷേത്രം തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രം തളി മഹാക്ഷേത്രം ആല ത്തിയൂർ ഹനുമാൻകാവ് എന്നീ ദേവസ്ങ്ങളിൽനിന്നാണ് തുക സമാഹ രിച്ചത്

തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീ ഷൻ വിളിച്ചുചേർത്ത അംഗീകൃത രാഷ്ട്രീയപാർട്ടികളുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും തെരഞ്ഞെടുപ്പ് ചെലവിന് പരിധി നിശ്ചയിക്കു ന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ കണക്ക് ഓഡിറ്റ് ചെയ്യുന്നതും വോട്ടർ പട്ടികയുടെ സുതാരൃത മെച്ചപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗം ചർച്ച ചെയ്യും രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളിലും സ്ഥാനാർത്ഥി കളിലും വനിതാപ്രാധിനിധ്യം വർദ്ധിപ്പിക്കുന്നതും യോഗം ചർച്ച ചെയ്യുന്നുണ്ട്

ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേസമയം തെരഞ്ഞെ ടുപ്പ് നടത്തുന്ന വിഷയം യോഗത്തിന്റെ അജണ്ടയിലില്ലെങ്കിലും രാഷ്ട്രീ യപാർട്ടികൾ ഉന്നയിക്കാനിടയുണ്ട് ഡൽഹിയിലെ നെഹ്റു സ്മാര്ക മ്യൂസിയത്തിന്റേയും തീൻമൂർത്തി ഭവന്റെയും മുഖം മാറ്റാനുള്ള നീക്കത്തിൽനിന്നും കേന്ദ്രഗവൺമെന്റ് പിന്മാറണമെന്നാവശൃപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻപ്രധാനമന്ത്രി ഡോ

വികാരങ്ങളെ മാനിക്കണമെന്നും തീൻമൂർത്തി ഭവനെ നെഹ്റുവിന്റെ മാത്രം സ്മാരകമായി നിലനിർത്ത ണമെന്നും മൻമോഹൻസിംഗ് കത്തിൽ ആവശ്യപ്പെട്ടു തീൻമൂർത്തി ഭവനെ എല്ലാ പ്രധാനമന്ത്രിമാരുടെയും സ്മാരകമായി മാറ്റാനുള്ള ഗവൺമെന്റ് തീരുമാനം വിവാദമായ പശ്ചാത്തലത്തിലാണ് ഡോ മൻമോ ഹൻസിംഗ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്

പ്രളയദുരന്ത ത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലാതെ ആചാരപരമായ ചട ങ്ങുകളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത് ജയന്തി സമ്മേളനങ്ങളും ഘോഷയാത്രകളും ഒഴിവാക്കിയിട്ടുണ്ട് ചെമ്പഴന്തിയിൽ രാവിലെ സ്വാമി പ്രകാശാനന്ദ പതാക ഉയർത്തി തുടർന്ന് ജപയജ്ഞം സ്വാമി വിശുദ്ധാ നന്ദ ഉദ്ഘാടനം ചെയ്തു ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലെ ത്തിയ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഗുരുവിന്റെ വയൽവാരം വീട്ടിൽ പ്രാർത്ഥന നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏവർക്കും ശ്രീനാരായണഗുരു ജയന്തി ആശംസ നേർന്നു മാനവ സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശം ലോകത്ത് പ്രചരിപ്പിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരുവെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനം പ്രളയകെടുത്തിയിലകപ്പെട്ട ഈ നിമിഷങ്ങളിൽ അതിജീവനത്തിന് ഗുരുവിന്റെ വചനങ്ങൾ കരുത്തേകുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു

ഗവൺമെന്റിനെ വിമർശിച്ചതിനെതുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് അദ്ദേഹത്തെ സസ്പെന്റ് ചെയ്തത് അനു വാദമില്ലാതെ പുസ്തകമെഴുതിയ സംഭവത്തിൽ അദ്ദേഹത്തിനെതിരായ വകുപ്പുതല അന്വേഷണം പൂർത്തിയാകാത്ത് സാഹചര്യത്തിൽ സസ്പെൻഷൻ നീട്ടാൻ ചീഫ് സെക്രട്ടറി അദ്ധ്യക്ഷനായ സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജേക്കബ് തോമസിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടിയത് ജക്കാർത്ത ഏഷ്യൻഗെയിംസ് ബാഡ്മിന്റൺ സിംഗിൾസിൽ ഇന്ത്യ യുടെ സൈന നെഹ്വാളിന് വെങ്കലം ലോക ഒന്നാംനമ്പർ താരം ചൈനീസ് തായ്പേയിയുടെ തായ്സുയിംഗിനോടാണ് സെമിഫൈനലിൽ നേരിട്ടുള്ള സെറ്റുകൾക്ക് സൈന പ്രാജയപ്പെട്ടത്

വനിതാതാരം പി

സിന്ധുവും ബാഡ്മിന്റൺ സെമിയിൽ ഇന്ന് മത്സരിക്കും ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകളായ മലയാളി താരങ്ങൾ നയന ജെയിംസും വി നീ നയും അനു രാഘവനും ഇന്ന് ഫൈനലിൽ മത്സരിക്കുന്നുണ്ട്

ഉറച്ചു മെഡൽ പ്രതീക്ഷയായ നീരജ് ചോപ്രയുടെ ജാവലിംഗ് ത്രോ ഫൈനലും വൈകീട്ട് നടക്കും

സംസ്ഥാന പുരുഷ വനിത ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കാസർകോട് രാജപുരത്ത് തുടങ്ങി അടുത്തമാസം രാജസ്ഥാനിൽ നട ക്കുന്ന ദേശീയ യൂത്ത് ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ കേരള ടീമു ട കളെ വ്യാഴാഴ്ച വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും ഓപ്പറേഷൻ കനോലി കനാൽ പദ്ധതിയുടെ ഭാഗമായി നിറവിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കനോലി കനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നാളെ തുടങ്ങും

മീ ദൈർഘ്യമുള്ള കനാലിനെ എട്ടുഭാഗങ്ങളായി തിരിച്ച് പത്തു ദിവസങ്ങളിലായാണ് ഒന്നാംഘട്ട ശുചീ കരണ പ്രവർത്തനങ്ങൾ നടത്തുക ശുചീകരണപ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെയും ഉപകരണങ്ങളും നൽകി നഹായിക്കാൻ ഇതു സംബന്ധിച്ചുചേർന്ന ആലോചനായോഗം തീരുമാനിച്ചു ശുചീകരണത്തി നുശേഷം എട്ടു സംരക്ഷണ സമിതി രൂപീകരിച്ച് കനാലിനെ വീണ്ടും സംര ക്ഷിക്കാനും യോഗം തീരുമാനിച്ചു പാലക്കാട് കസബ പൊലീസ് സ്റ്റേഷനിലെ സിപ്പിൽ പൊലീസ് ഓഫീ സർ റിനിലിന്റെ മൃതദേഹം യാക്കര പുഴയിലെ തടയണയിൽ കണ്ടെത്തി ശനിയാഴ്ച നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വടക്കൻതറയിലെ പൊലീസ് കോട്ടേ ഴ്സിലേക്കു പോയ റിനിലിനെ ഇന്നലെ പുലർച്ചെ മുതൽ കാണാതായിരു ന്നു സൈബർസെല്ലിന്റെ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന്റെ ഫോൺ യാക്കര പുഴയോരത്ത് കണ്ടെത്തിയതിനെതുടർന്നാണ് ഫയർ ഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് ടീം തിരച്ചിൽ നടത്തി ഇന്നു രാവിലെ മൃതദേഹം കണ്ടെത്തിയത് തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി